പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിദഗ്ദ്ധരുമായി രാജ്യത്തിന്റെ സാമ്പത്തികനയം ചർച്ചു ചെയ്യും

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെയും വെസ്റ്റിൻഡീസ് ന്യൂസിലന്റിനെയും നേരിടും

വികസനവും തൊഴിൽ ഉല്പാദനവും പ്രോത്സാഹിപ്പിക്കുന്ന സാമ്പത്തികനയം ചർച്ചാവിഷയമായേക്കും നീതി സംഘടിപ്പിക്കുന്ന കൂടിക്കാഴ്ചയിൽ മേഖലയിലെ വിദ്ഗ്ദ്ധർ വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു

ഭക്ഷ്യ സുരക്ഷ ഊർജസുരക്ഷ സാമ്പത്തിക സ്ഥിരത ഭീകരത ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലെ നവീകരണം നിർമ്മിത ബുദ്ധി എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാകും

വിശ്വാസവും സത്യസന്ധമായതും ഇന്ത്യ പിൻവലിക്കാനാവാത്തതും സുസ്ഥിരവുമായ നടപടികൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ കൈക്കൊള്ളണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക്ഫോഴ്സിന്റ പ്രവർത്തന പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ വേണ്ട എല്ലാ നടപടികളും ഈ പ്പർഷം സെപ്തംബറോടെ നടപ്പിലാക്കുമെന്നും ഇന്ത്യ പ്രത്യാശ്യപ്പക്ടിപ്പിച്ചു

ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു ആയുധക്കച്ചവടക്കാരനായ സഞ്ജയ് ഭണ്ഡാരിയുടെ പേരിലും കേസെടുത്തു ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല

റ്റി മുഖേന വാർഷിക വരുമാനം ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി രണ്ടുമാസം കൂടി ദീർഘിപ്പച്ചു ഡൽഹിയിൽ ഇന്നലെ ചേർന്ന ജി

നരേന്ദ്രമോദി ഗവൺമെന്റ് രണ്ടാം തവണയും അധികാരത്തിലേറിയതിനു ശേഷം നടക്കുന്ന ആദ്യ ജി എസ് ടി കൌൺസിൽ യോഗത്തിൽജി

ടി

നേരത്തെ ജി

ഇത് ഏക്ടീകരിക്കാനാണ് ആധാർ ഉപയോഗിക്കുന്ന തെന്ന് റവന്യൂ സെക്രട്ടറി ് അജയ് ഭൂഷൺ പാണ്ടെ പറഞ്ഞു ഉപഭോക്താക്കൾക്ക് ജി

എസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് രാവിലെ തുടങ്ങിയ ഏറ്റുമുട്ടൽ തുടരുകയാണ്

അതേസമയംപുൽവാമയിലെ ദ്രബ്ഗാം മോംഗൽ ഗ്രാമങ്ങളിലും സൈനൃം വൃാപകമായ തെരച്ചിൽ നടത്തുകയാണ്

ആർ

എഫ് രാഷ്ട്രീയ റൈഫിൾസ് ജമ്മുകാശ്മീർ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവർ സംയുക്തമായി നടത്തുന്ന തെരച്ചിലും തുടരുന്നുണ്ട്

പാർലമെന്ററി കമ്മിറ്റികളിലെ അർത്ഥവത്തായ ചർച്ചകൾ സഭാനടപടികൾ സമ്പന്നമാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എം പിമാർക്ക് പാർലമെന്ററി നടപടികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഡിജിറ്റൽ ലൈബ്രറി സൌകര്യം എളുപ്പത്തിൽ ലഭ്യമാക്കാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുമെന്നും ശ്രീ ബിർള അറിയിച്ചു

വൈകീട്ട് മൂന്നിന് സതാംപ്ടണിൽ തുടങ്ങുന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെയാണ് ഇന്ത്യ നേരിടുന്നത്

വോയിസ് കടുപ്പമേറിയ വെല്ലുവിളികൾ വിജയകരമായി അതിജീവിച്ചാണ് ഇന്ന് ടീം ഇന്ത്യ എത്തുന്നത്

ശ്രക്തമായ ബാറ്റിങ് ബൌളിങ് നിര ഇന്ത്യക്ക് അവകാശപ്പെടാനുണ്ട് ്രോഹിത് രാഹുൽ കോഹ്ലി ഹാർദിക് പാണ്ഡ്യ ധോണി തുടങ്ങിയിപ്പിലിയ താരനിരയുണ്ട് ബാറ്റിങ്ങിൽ

തായ്ലന്റിന്റെ തനാവത് തിശാപൊങ് പെയ്ബൂണിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് പങ്കജിന്റെ പതിനഞ്ചാം കിരീടമാണിത് അടുത്തയാഴ്ച ദോഹയിൽ നടക്കുന്ന ലോകകപ്പ് സൂക്കറിലും അദ്ദേഹം പങ്കെടുക്കും

ജെ

നാല് പേരെ ബി ജെ പി ലിസ്റ്റിൽപെടുത്തിയ വിവരം രാജ്യസഭാ ചെയർമാന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു

ചൌധരി സി

വെങ്കിടേഷ് എന്നീ നാല് അംഗങ്ങൾ ഇന്നലെ രാജ്യസഭാർ ചെയർമാൻ വെങ്കയ്യനായിഡുവിന് പാർട്ടിയുടെ ബി ജെ പി ലയന്റ് സ്ംബന്ധിച്ച് കത്ത് കൈമാറി

വലിയ പ്രതിഷേധങ്ങൾ നേരിട്ട ശേഷമാണ് സഭയിൽ ബിൽ അവതരിപ്പിക്കാനായത് നിയമ മന്ത്രി ബിൽ അവതരിപ്പിക്കാൻ എണീറ്റപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ എല്ലാം ഇതിനെ ശക്തമായി എതിർത്തു മുസ്തീം സ്ത്രീകളെ ശാക്തീകരിക്കാനും അവരുടെ സംരക്ഷണത്തിനുമായാണ് നിയമം കൊണ്ടുവരുന്നതെന്ന് ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

കേരളത്തിൽ നിന്നും കൊണ്ടുവരുന്ന രണ്ടുദശലക്ഷം ലിറ്റർ ജലത്തിനു പുറമെയാണ് ഇതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ കുറേ നാളായി അനുഭവപ്പെടുന്ന കടുത്ത ജലക്ഷാമത്തെ തുടർന്ന് ചെന്നൈ നഗരത്തിന്റെ താളം തെറ്റിയിരുന്നു നഗരത്തിലെ പല വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തനം നിർത്തിവയ്ക്കുകയും നിയന്ത്രിക്കുകയും ഒചയ്യാനും തുടങ്ങിയിരുന്നു

തമിഴ്നാട് ഗവൺമെന്റ് കലൈമാമണി പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് കർണാ ടക സംഗീതത്തിന് നാലു തലമുറകളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അപൂർവ്വ വ്യക്തിത്വമാണ് രാമമൂർത്തിയുടേത് പ്രശസ്ത വയലിൻ വാദകൻ മുരിങ്ങപുരി ഗോപാലകൃഷ്ണ അയ്യർ സംഗീ തജ്ഞ എം എൽ വസന്തകുമാരി എന്നിവർക്കൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്

വി

ആഫ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്സിയാണ് വൈ

കോൺഗ്രസ് നേതാവ് കൂടിയായ റെഡ്സിയെ നിയമിച്ചത്

ശ്രീ ജഗൻമോഹന്റെ അമ്മാവൻ കൂടിയായ അദ്ദേഹം ഇന്ന് സ്ഥാനമേൽക്കും

പൊതുജനതാല്പര്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ഇന്നു മുതൽ അടിയന്തരാവസ്ഥ നീട്ടുതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അറിയിച്ചു

മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാലുലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ൂരോഗബാധ തടയുന്നതിന് മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പിന് അടിയ്ക്ത്രി നിർദ്ദേശവും നൽകി

ഇന്ന് കാസർകോട് കണ്ണൂർ ് ജില്ലകളിലും നാളെ കണ്ണൂരും കേന്ദ്ര കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു